പൊലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ഇരിപ്പിടം ഉറപ്പുവരുത്തുന്ന നിയമഭേദഗതി നിലവിൽ വന്നു സംസ്ഥാനത്തെ സ്കൂൾ പാഠ്യപദ്ധതി സമഗ്രമായി പരിഷ്കരിക്കും

ശബരിമലയിലെ സുരക്ഷാകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നത പൊലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും ക്രമ സമാധാന പ്രശ്നസാധ്യത സംബന്ധിച്ച ഇന്റലിജന്റ് സ് റിപ്പോർട്ടിന്റെ അടിസ്ഥാന ത്തിലാണ് യോഗം തുലാമാസ പൂജയ്ക്ക് നട തുറന്നപ്പോൾ എരുമേലി മുതൽ സന്നിധാനം വരെയുണ്ടായ പ്രശ്നങ്ങളും യോഗം വിലയിരുത്തും സംസ്ഥാന പൊലീസ് മേധാവി എ ഡി ജി പി പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലാ പൊലീസ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും ് ് ് ് ് ് ് ് ് ശബരിമലയിലെ സ്ഥിതി സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ ദേവസ്വം ബോർഡ് നടത്തുന്ന നീക്കത്തിന് ഒരു സഹായവും നൽകി ല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി പത്തനംതിട്ടയിൽ എൽ ഡി എഫിന്റെ രാഷ്ട്രീയ വിശദീകരണയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേ ഹം ഭരണഘടന അംഗീകരിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാര മേൽക്കുന്ന ഗവൺമെന്റ് ഭരണഘടനാ ബഞ്ചിന്റെ വിധിക്കെതിരെ പുനഃപരിശോ ധനാ ഹർജി നൽകുന്നത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണെന്നും മുഖ്യ മന്ത്രി പറഞ്ഞു ശബരിമല വിധിക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ സുപ്രീം കോടതിയിൽ പുനഃപരിശോ ധനാ ഹർജി നൽകി

കേസിൽ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി കേസിൽ പ്രയാറിനുവേണ്ടി ഹാജരാകും ് ് ് ് ് ് ് ് ശബരിമലയുടെ പവിത്രത നിലനിർത്തി വിശ്വാസി സമൂഹത്തെ സംര ക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എൻ ഡി എ സംസ്ഥാന ഘടകം രൂപ രേഖ തയ്യാറാക്കും ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തി വിശ്വാസികൾക്കൊപ്പം നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ബി ജെ പി ദേശീയ അധ്യ ക്ഷൻ അമിത് ഷായുമായി ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി നടത്തിയ ചർച്ചയിൽ ധാരണയായി ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജി നൽകിയാലും ഫലമുണ്ടാ കില്ലെന്ന് ജസ്റ്റിസ് ബി കമാൽപാഷ അഭിപ്രായപ്പെട്ടു കോട്ടക്കൽ കോട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിയമബോധവത്കരണ ക്ലാസ് നയിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല വിഷയത്തിൽ സുപ്രിം കോടതി വിധി പിഴവറ്റതാണെന്നും പുനപരിശോധന ഹർജി അപ്പീൽ അല്ലെന്നും കെമാൽ പാഷ പറഞ്ഞു ് ശബരിമല ദർശനത്തിന് പൊലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് നാല് യുവതികൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു ഹർജികൾ ഇന്ന് കോടതി പരിഗണിച്ചേക്കും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ദർശനത്തിന് അവകാശമുണ്ടെന്നും എന്നാൽ പ്രതിഷേധംമൂലം ശബരിമലയിൽ പോകാനാവാത്ത സ്ഥിതിയാണെന്നും ഹർജിയിൽ പറയുന്നു

പമ്പയിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നില യ്ക്കലിലും റാന്നിയിലും പാർക്കിംഗ് ഗ്രൌണ്ടുകളുടെ സൌകര്യവികസനം എരുമേ ലിയിലും പമ്പയിലും കീഴിലത്തും ഇടത്താവളം തുടങ്ങിയവയാണ് ഈ ഘട്ടത്തിൽ പണി പൂർത്തീകരിക്കുന്നത്

തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ഇരിപ്പിടം ഉറപ്പു വരുത്തുന്ന സുപ്രധാന നിയമഭേദഗതി നിലവിൽവന്നു ഇതുസംബന്ധിച്ച് ഗൃവർണർ ഓർഡിനൻസ് പുറപ്പെ ടുവിച്ചു

നിയമഭേദഗതികൾ ഉടൻ നടപ്പാക്കണമെന്ന് തൊഴിലുടമകളോടും അവകാശങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് തൊഴിലാളികളോടും മന്ത്രി ടി പി രാമകൃഷ്ണൻ അഭ്യർത്ഥിച്ചു

മന്ത്രി പ്രൊഫസർ സി രവീന്ദ്ര നാഥ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു തൊഴിൽ പഠനത്തിന് ഊന്നൽ നൽകാനും ദുരന്തനിവാരണ അവബോധം മെച്ചപ്പെടുത്താനും മൂല്യബോധം വർദ്ധിപ്പിക്കാനും ആവശ്യമായ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി പുസ്തകങ്ങൾ പരിഷ്കരിക്കാൻ നേരത്തെ എസ് സി ഇ ആർ ടിയെ ചുമതലപ്പെടുത്തിയിരുന്നു

അനധികൃതമായ മുഴുവൻ ബോർഡുകളും നീക്കണമെന്നും അല്ലാത്തപക്ഷം അതിന്റെ ചെലവും നഷ്ടവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കുമെന്ന് കോടതി വൃക്തമാക്കി

കൈകോർക്കുകയാണെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി

വീണ്ടുമൊരു വിമോചനസമരത്തിന്റെ സാധ്യത അവർ തേടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പുന്നപ്ര വയലാർ സമര വാരാചരണത്തിന്റെ ഭാഗമായി പുന്നപ്രയിൽ അനുസ്മരണ സ്മ്മേളനം ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു വി

ക്കോസ് കാട്ടുതറയുടെ മൃതദേഹം ഇന്ന് വൈകിട്ട് കൊച്ചിയിലെത്തിക്കും നാളെ ഉച്ചയ്ക്ക് ചേർത്തല പള്ളിപ്പുറം സെന്റ് മേരീസ് ഫെറോന പള്ളി സെമിത്തേരി യിൽ സംസ്കരിക്കും ഇന്നലെ മെഡിക്കൽ ബോർഡിന്റെ സാന്നിധ്യത്തിൽ ജല ന്ധറിൽതന്നെ പോസ്റ്റുമോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരുന്നു

വിശാഖപട്ടണത്ത് നടക്കും ഗോഹട്ടിയിലെ ഒന്നാം ഏകദിനത്തിൽ നേടിയ ജയത്തിന്റെ ആത്മവിശാസത്തോടെയാണ് ഇന്ത്യ ഇന്ന് കളിക്കാനിറങ്ങുന്നത് ഗോഹട്ടിയിലെ അതേ ടീം തന്നെയായിരിക്കും രണ്ടാം മത്സരത്തിലും കളിക്കുന്ന ത് ഉച്ചക്ക് ഒന്നരയ്ക്കാണ് മത്സരം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ് സി ഡൽഹി ഡൈനാമോസ് മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു

പോയിന്റ് പട്ടികയിൽ ഡൽഹി എട്ടാം സ്ഥാനത്തും ചെന്നൈയിൻ ഒമ്പതാം സ്ഥാനത്തുമാണ് ഇന്ന് എഫ് സി ഗോവ മുംബൈ സിറ്റിയെ നേരിടും വൈകീട്ട് ഏഴരയ്ക്ക് ഗോവയിലാണ് മത്സരം

പയ്യന്നൂർ ഉപജില്ലയ്ക്കാണ് രണ്ടാം സ്ഥാനം ഇരിട്ടി ഉപജില്ല മൂന്നാം സ്ഥാനം നേടി

കിഴിശ്ശേരി മങ്കട ഉപജില്ല കൾക്കാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ

വായ്പാ പുനക്രമീകരണം മൊറട്ടോറിയം പുതിയ വായ്പ തുടങ്ങിയ ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവർക്ക് ലഭിക്കും

കേന്ദ്ര ക്ഷേമ പദ്ധതികളെകുറിച്ച് ഇന്ന് അവണൂർ ഗ്രാമപഞ്ചായത്തിൽ ബോധ വൽക്കരണ പരിപാടി സംഘടിപ്പിക്കും അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയ ബാബുരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്യും വികസന ആരോഗ്യ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സോങ് ആന്റ് ഡ്രാമ ഡിവിഷനിലെ കലാകാരന്മാർ പ്രത്യേക പരിപാടി അവതരിപ്പിക്കും

ലയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും നദികളുടെയും പരിസ്ഥിതിയു ടെയും വീണ്ടെടുപ്പിന് ജനകീയ ഇടപെടലുകൾ നടത്തിയവരെ പങ്കെടുപ്പിച്ചാണ് രണ്ടു ദിവസത്തെ ശില്പശാല സംഘടിപ്പിക്കുന്നത് മന്ത്രി മാത്യു ടി തോമസ് ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം ഹാളിൽ ശില്പശാല ഉദ്ഘാടനം ചെയ്യും നീർത്തട മാസ്റ്റർ പ്ലാൻ പ്രകാശനവും അദ്ദേഹം നടത്തും ഉച്ചകഴിഞ്ഞ് നദീപുനരു ജ്ജീവനത്തിൽ ഭാവിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിക്കും

നാലു ബോട്ടുക ളിൽ നിന്ന് പിടിച്ചെടുത്ത മീൻ ലേലം ചെയ്തു ബോട്ടുകൾക്ക് രണ്ടരലക്ഷം രൂപ വീതം പിഴയും ചുമത്തി

ചടങ്ങിൽ മന്ത്രി എ

മൊയ്തീൻ ഗുണഭോക്താക്കൾക്ക് താക്കോലുകൾ കൈമാറും

പണ്ഡിതനുമായ കെ പി ഹംസ മുസ്തിയാർ ചിത്താരി നിര്യാതനായി

തളിപ്പറമ്പിലെ വസതിയിൽ ഇന്ന് പുലർച്ചയായിരുന്നു അന്ത്യം ഖബറടക്കം ഇന്ന് വൈകീട്ട് നാല് മണിക്ക് തളിപ്പറമ്പിനടുത്ത നാടുകാണി അൽ മഖർ ക്യാമ്പസിൽ

കൾ വൈകുന്നതിൽ പിന്നാക്കവിഭാഗ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി അതൃപ്തി പ്രകടിപ്പിച്ചു മലപ്പുറം കലക്ട്രേറ്റ് ഹാളിൽ നടത്തിയ തെളിവെടുപ്പി ലാണ് അംഗങ്ങൾ ഇക്കാര്യം അറിയിച്ചത് ഒമ്പത് പരാതികൾ സമിതി പരിഗണിച്ചു

പ്രശ്നങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളും കൂടിവരുന്നതായി വനിതാ കമ്മീഷൻ അംഗം ഇ എം രാധ അഭിപ്രായപ്പെട്ടു കണ്ണൂരിൽ കമ്മീഷന്റെ മെഗാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ